സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കാൻ കോവിഡ് പ്രോട്ടോക്കോൾ മുൻനിർത്തി നടപടികൾ ശക്തമാക്കി

കോവിഡ് പ്രതിരോധ പ്രവർത്തുനങ്ങളുടെ ഭാഗമായി വാളയാർ ചെക്ക് പോസ്റ്റിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി

ആൾക്കൂട്ടം ഒഴിവാക്കാൻ ഊർജ്ജിതമായ ഇടപെടലിന് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി ബോധവൽക്കരണ പ്രവർത്തനത്തിലും ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം പോലീസും സജീവമാണ് പ്രധാന മാർക്കറ്റുകളിലും കവലകളിലും കോവിഡ് മാർഗ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഉച്ചഭാഷിണിയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കുന്നവർക്ക് പൊലീസ് ഉദ്യോഗസ്ഥർ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് വഴിയോര കച്ചവടമടക്കം സജീവമായെങ്കിലും ആൾക്കൂട്ടം പൊതുവേ ഒരിടത്തുമില്ല കച്ചവടക്കാരും ജനങ്ങളും കൃത്യമായി മാസ്ക് ധരിക്കാനും ശാരീരിക അകലം പാലിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്

കോവിഡ് പ്രതിരോധത്തിനായി ജില്ലാതലത്തിൽ നടപ്പാക്കുന്ന പുതിയ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണു നടപടി

ചന്തകൾ കടകൾ തെരുവോര കച്ചവട കേന്ദ്രങ്ങൾ മത്സൃവ്യാപാരി കേന്ദ്രം ലഘുഭക്ഷണശാലകൾ എന്നിവിടങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നു എന്ന് ഈ സംഘം ഉറപ്പാക്കണം രോഗലക്ഷണം കണ്ടെത്താൻ സ്ഥിരം കിയോസ്കുകൾക്കൊപ്പം വീടുകളിൽപ്പോയി പരിശോധന നടത്തുന്ന ടീമുകളെയും സജ്ജമാക്കും

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പാലിക്കേണ്ട സാമൂഹിക അകലം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് ഉപകരണം രൂപകൽപന ചെയ്തത് വൃക്തികൾ തമ്മിലുളള അകലം ഒരു മീറ്ററിൽ കുറയുമ്പോൾ ഉപകരണം ശബ്ദമുണ്ടാക്കുകയും എൽ

പരിപാടിയുടെ അറുപത്തിയെട്ടാം പതിപ്പാണിത്

ദേശീയ കായിക പുരസ്ക്കാ്രം നേടിയ പ്രതിഭകൾക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഓൺലൈൻ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു അർജ്ജുന ദ്രോണാചാര്യ ധ്യാൻചന്ദ് ടെൻസിംഗ് നോർഗെ രാഷ്ട്രീയഖേൽ പുരസ്കാരങ്ങളാണ് സമ്മാനിച്ചത് കായികമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രധ്രുവ് ബാത്ര തുടങ്ങി വിശിഷ്ടാതിഥികൾ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നിന്ന് ചടങ്ങിൽ പങ്കെടുത്തു

പ്രധാനമന്ത്രി വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ കായിക പ്രതിഭകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്ന ദിവസമാണ് ദേശീയ കായിക ദിനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹോക്കി സ്റ്റിക് കൊണ്ട് മാന്ത്രികത്തിന്റെ പ്രധാനമന്ത്രികത് സൃഷ്ടിച്ച മേജർ ധ്യാൻചന്ദിന് ഈ ദിനത്തിൽ ശ്രദ്ധാജ്ഞലി അർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

ഇന്നലെ ഷോപ്പിയൻ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ നാല് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു

ദ്രദ്ധ്ഷിണ നാവികസേന ആസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിക്ലാന്റ് ദക്ഷിണനാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ എംകെ

കൊച്ചി കപ്പൽശാല സ്റ്റീൽ ഇൻസ്ട്രീസ് കേരള ലിമിറ്റഡ് എറണാകുളം ജില്ല ഭരണകൂടം എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് സ്മാർട്ട് സിറ്റി ദേശീയ സ്മാർട്ട് സിറ്റിയിൽ ഇടം നേടിയ കവറത്തി സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ കീഴിൽ ബീച്ച് റോഡ് ആധുനികവൽക്കരിക്കുന്ന പദ്ധതിക്ക് അഡ്മിനിസ്ട്രേറ്റർ ദിനേശു ശർമ്മ അംഗീകാരം നൽകി കൂടുതൽ വിവരങ്ങളുമായി കവറത്തിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം

കോവിഡ് പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്ക് പ്രവേശനം അനുവദിക്കില്ല

എസ് രാജേന്ദ്രൻ എം എൽ ്എ യുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽവൈദുതി മന്ത്രി ക്ലാം എം മണി വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു കേന്ദ്രീയ വിദ്യാലയ്ട്പ്പ ചടയമംഗലത്ത് പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തി ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ ചിലവിൽ കേന്ദ്രീയ വിദ്യാലയം സ്ഥാപിക്കുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ന്യൂനപക്ഷ കാര്യ മന്ത്രി മുഖ്താർ അബ്ബാസ് നഖി ഉറപ്പ് നൽകിയതായി എൻ

മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനായ ചിറക്കര സ്വദേശിക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് പാരിപ്പള്ളി പോലീസ് കേസെടുത്തു ഗൃഹനിരീക്ഷണത്തിൽ കഴിയുന്നവർ പുറത്തുപോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സൈബർ പോലീസിന്റെ സഹായത്തോടെ ശക്തമായ നിരീക്ഷണമാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്

ഐ

സി നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു